പശ്ചിമബംഗാൾ ഒഡീഷ തീരങ്ങളിൽ കനത്ത ജാഗ്രത

ശതമാനമായതായി ്ക്ക്പ്ന്ദ് ആരോഗ്യ മന്ത്രാലയം

പുതുക്കിയ തീയതി ജൂണിൽ തീരുമാനിക്കും

അന്തർജില്ലാ കെ എസ് ആർ ടി സി സർവ്വീസുകൾ സംസ്ഥാനത്ത് പുനഃരാംരംഭിച്ചു

ഒഡീഷ പശ്ചിമബംഗാൾ തീരങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്

അടിയന്തര ഘട്ടത്തെ നേരിടാൻ സജ്ജമാണെന്ന് എൻ ഡി

എഫ് മേധാവി അറിയിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പശ്ചിമ ബംഗാൾ ഒഡീഷ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി

കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് ജി

ചുഴലിക്കാറ്റ് തീരത്തോട് അടുക്കുന്നതിന് മുന്നോടിയായി പശ്ചിമബംഗാളിലെ ഏഴ് ത്യൂരദ്ദേശ ജില്ലകളിൽ നിന്നായി നാല് ലക്ഷത്തോളം പേരെ ്വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ വിലയിരുത്തി

നാളെ രാവിലെ വരെ കാറ്റ് തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്

മേഖലയിലെ ജനങ്ങളെ സമീപത്തുള്ള സുരക്ഷിതകേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അതിഥി തൊഴിലാളികളുടെ മടങ്ങിപ്പോക്കിനെയും ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട് സംസ്ഥാന കർമസേനകൾക്കു പുറമെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഫയർ ഫോഴ്സ് വനംവകുപ്പ് എന്നിവയുടെ സംഘങ്ങളെ മേഖലയിലാകെ വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിശാഖപട്ടണത്ത് നാവികസേനാ കപ്പലുകൾ ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങൾ എത്തിക്കാൻ സജ്ജമായി നിലകൊള്ളുകയാണ് ഈ കപ്പലുകളിൽ ഡോക്ടർമാർ മുങ്ങൽ വിദഗ്ദ്ധർ റബ്ബർ ബോട്ടുകൾ ആഹാരം വസ്ത്രം മരുന്ന് ബ്ലാങ്കറ്റുകൾ ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ വേണ്ട അളവിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വിശാഖപട്ടണത്തും തമിഴ്നാട്ടിലെ ആരക്കോണത്തും നാവിക വിമാനങ്ങളും സജ്ജമാണ്

ഇവരുടെ പരിശ്രമത്തിലൂടെ ഈ പദ്ധതിയെ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പരിപാടിയാക്കി മാറ്റാൻ സാധിച്ചതായി അദ്ദേഹം ടിറ്റർ സന്ദേശത്തിൽ കുറിച്ചു സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരും പാവപ്പെട്ടവരും ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ വിശ്വാസം നേടിയെടുക്കാൻ ഈ പദ്ധതിയ്ക്കായതായി അദ്ദേഹം പറഞ്ഞു

പദ്ധതിയുടെ എല്ലാ ഗുണഭോക്താക്കളെയും അവരുടെ കുടുംബങ്ങളേയും അഭിനന്ദിച്ച പ്രധാനമന്ത്രി അവരുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നതായി അറിയിച്ചു

എസ് എൽ സി പ്തസ് ടു പരീക്ഷകൾ മാറ്റിവച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

അതിനു ശേഷം പുതിയ തീയതി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

ഫിലിപ്പൈൻസിലെ മനിലയിൽ നിന്നും ദുബായിൽ നിന്നുമുള്ള വിമാനങ്ങളാണ് ഇന്ന് ഇനി കൊച്ചിയിലെത്താനുള്ളത് കുവൈറ്റിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള രണ്ട് വിമാനങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് ഇന്ന് എത്തുക മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കും സലാലയിൽ നിന്ന് കോഴിക്കോട്ടേയ്ക്കും ഇന്ന് വിമാന സർവ്വീസുകൾ ഉണ്ട് റിയാദ് കണ്ണൂർ വിമാനവും ഇന്നെത്തും

ഓപ്പറേഷൻ സമുദ്രസേതുവിന്റെ ഭാഗമായുള്ള ശ്രീലങ്കയിൽ നിന്നുള്ള ആദ്യ കപ്പലാണ്

കൊളംബൊയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഈ ഒഴിപ്പിക്കൽ നടപടിക്ക് ശ്രീലങ്കൻ അധികാരികളുടെ പിന്തുണ ആട്ട്യർത്ഥിച്ചിട്ടുണ്ട്

സി ട്രെയിനുകൾ കൂടി സർവ്വീസ് ആരംഭിക്കൂർമെന്ന് കേന്ദ്ര റെയിൽമന്ത്രി പിയൂഷ്ഗോയൽ

കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള ശ്രാമിക് ട്രെയിനുകളുടെ എണ്ണം ഇരട്ടിയാക്കാനും റെയിൽവേ തീരുമാനിച്ചു

ലോക്ഡൌണിനെ തുടർന്ന് ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിലും കുടുങ്ങിയ വിദ്യാർത്ഥികൾ അടക്കമുള്ള മലയാളികളാണ് ഇന്ന് നാട്ടിലെത്തുക

ബംഗളൂരുവിൽ നിന്നുള്ള പ്രത്യേക നോൺ എ സി ട്രെയിൻ നാളെ മുതൽ സർവ്വീസ് ആരംഭിക്കും

എസ് ആർ ടി സർവ്വീസ് പുനഃരാംരംഭിച്ചു രണ്ടു മാസത്തെ ഇടവേളക്കു ശേഷമാണ് സംസ്ഥാനത്ത് ബസ്സുകൾ ഓടിത്തുടങ്ങിയത് എന്നാൽ സ്വകാര്യ ബസുകൾ സർവ്വീസ് നടത്തുന്നില്ല മാസ്ക് അടക്കമുള്ള എല്ലാ ജാഗ്രതാ മുൻകരുതലുകളും കർശനമായി പാലിച്ചാണ് സർവ്വീസ് നടത്തുന്നത്

നേരത്തെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ സർക്കാർ നിരക്ക് കുറച്ചിരുന്നു

റെഡ് സോണുകളിലുള്ള ദന്താശുപത്രികൾ അത്യാവശ്യ ചികിത്സകൾക്കായി തുറക്കാൻ അനുവാദമുണ്ട് ഓറഞ്ച് ഗ്രീൻ സോണുകളിലുള്ള ദന്താശുപത്രികൾക്ക് തുറക്കാൻ തടസ്സമില്ല

ഇ മെയിൻ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്താൻ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നേതൃത്വത്തിൽ നാഷണൽ ടെസ്റ്റ് അഭ്യാസ് എന്ന പേരിൽ പുതിയ മൊബൈൽ ആപ്പ് കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ പുറത്തിറക്കി